ബി

സി മൊയ്തീൻ രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ കീഴാറ്റൂരിൽ വയൽ നികത്തി ദേശീയപാത ബൈപാസ് നിർമ്മി ക്കാൻ പുറപ്പെടുവിച്ച അലൈൻമെന്റ് നോട്ടിഫിക്കേഷൻ മരവിപ്പിക്കാൻ കേന്ദ്രഗവൺമെന്റ് നിർദ്ദേശിച്ചു ദേശീയപാതാ അതോറിറ്റിക്ക് ഇതുസംബ ന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശം നൽകിയതായി ബി

പി നേതാക്കൾ വയൽക്കിളി സമര നേതൃത്വത്തെ അറിയിച്ചു

സമരക്കാരുമായി അടുത്തമാസം ആദ്യം കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും രുട്ട്ട്ട്ട്ട്ട്ട്ട ബന്ദിപ്പൂർ വനമേഖലയിലൂടെ രാത്രിയാത്രാ നിരോധനം നീക്കാനാവി ല്ലെന്ന് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി സുപ്രീംകോടതിയെ അറി യിച്ചു രാത്രികാല സഞ്ചാരത്തിന് മൈസൂരിൽ നിന്ന് ബദൽപാത വേണ മെന്നും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു രാത്രികാല യാത്രാനി രോധനം നീക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയാണ് അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റുചിലരെയും കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് കാണിച്ച് സി ബി ഐ സുപ്രീംകോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി കേസിൽ വസ്തുതകൾ പരിഗണിക്കാതെയായിരുന്നു ഹൈക്കോടതി വിധിയെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചു കേസിൽ ആരോപണവിധേയരായവർ വിചാ രണ നേരിടണമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു കസ്തൂരിരംഗ അയ്യർ ആർ ശിവദാസ് എന്നിവർക്കെതിരെ തെളിവുണ്ടെന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി

സുധാകരൻ പറഞ്ഞു തകർന്ന ദേശീയപാ തയ്ക്ക് കേന്ദ്രഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് പുനർ നിർമ്മിക്കും പണത്തിന്റെ പേരിൽ അറ്റകുറ്റപണി വൈകിക്കരുതെന്ന് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി രദ്ധ്ഷ്ടങ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമി ക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചിലർ ബോധപൂർവം കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും സൈബർലോകത്ത് ആളുകൾ തോന്നുന്നതുപോലെ എഴുതുകയാണെന്നും മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട ഉപജീവനത്തിന് മീൻ വിൽക്കാനിറങ്ങിയ കോളജ് വിദ്യാർത്ഥിനി ഹനാനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് ലൈവ് വീഡിയോ നൽകിയ വയ നാട് സ്വദേശി നൂറുദ്ദീൻ ഷെയ്ക്കിനെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

കൊച്ചി അസി സ്റ്റന്റ് കമ്മീഷണർ ലാൽജിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദൃംചെയ്തു

പി ബഹിഷ്ക രണ സമരം നടത്തുകയാണ് കേരളത്തിൽ ഗവൺമെന്റ് സ്വകാര്യ മേഖല കളിലെ ഡോക്ടർമാർ കരിദിനം ആചരിച്ച് ബഹിഷ്കരണത്തിൽ പങ്കെടു ത്തു ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാർ രാവിലെ ഒരുമണിക്കൂർ നേരമാണ് രോഗികളെ പരിശോധിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നത്

ആയുർവേദ ഡോക്ടർമാർക്ക് ബ്രിഡ്ജ് കോഴ്സിന് ശേഷം അലോപ്പതി ചികിത്സക്ക് അനുമതി നൽകുന്ന ബിൽ വ്യവ സ്ഥക്ക് എതിരെയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം

എസ് ആർ

സി ഉത്തരമേഖലാ കാർ്യാലയം കോഴിക്കോട്ട് മറ്റന്നാൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മാവൂർ റോഡിൽ കെ

കോഴിക്കോടിനു പുറമെ പാലക്കാട് മലപ്പുറം കണ്ണൂർ വയനാട് കാസർകോട് ജില്ലകൾ ഉത്ത രമേഖലയുടെ പരിധിയിൽ വരും

കുറ്റക്കാർക്കെതിരെ കർശന നട പടിവേണം

തുടർന്ന് ആകാശവാണിയും ദൂരദർശനും ഇതിന്റെ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും

കെ അധ്യക്ഷനുമായ കരുണാ നിധിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ചെന്നൈ കാവേരി ആശു പത്രിയിൽ തീവ്രപരിചരണ യൂണിറ്റിലേക്ക് മാറ്റി രക്തസമ്മർദ്ദം കുറഞ്ഞതി നാലാണ് ഐ

യുവിലേക്ക് മാറ്റിയതെന്നും വിദഗ്ദ്ധ സംഘം അദ്ദേഹത്തെ പരിചരിക്കുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു തമിഴ്നാട് ഗവർണർ ബെൻവാരിലാൽ പുരോഹിത് ആശുപത്രിയിലെത്തി കരുണാനി ധിയെ സന്ദർശിച്ചു ദർവ്വഹി വൃക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്താൽ പിഴ ചുമത്തുന്നതടക്കം ശുപാർശ ചെയ്യുന്ന ഡാറ്റാ സംരക്ഷണം സംബന്ധിച്ച് ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പി ആധാർ നിയമത്തിൽ ഭേദഗതി വേണമെന്നും വൃക്തിവിവരങ്ങൾ ഉപ ച്ചു യോഗിക്കുന്നതിന് ഉപയോക്താവിന്റെ അന്നുമതി വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്

സി മൊയ്തീൻ അറിയിച്ചു ഇതുസംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കണ്ണൂരിൽ സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറഞ്ഞു യോഗ മതപരമായ കാര്യമല്ലെന്നും വ്യായാമത്തിന് സൌകര്യമില്ലാത്ത ഇക്കാലത്ത് യോഗ ജീവിതചര്യയാക്കി മാറ്റണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർകോട്ട് യോഗ സെന്റർ ആരംഭിക്കുമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു

യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസി ഡന്റ് അശോക്കുമാർ അഗർവാൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി രുന്നു രുട്ടിട്ട്ട്ട്ട്ട്ട കോഴിക്കോട്ട് ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മാസ്റ്റേഴ്സ് ത്രീ പുരുഷ വിഭാഗത്തിൽ കേരളം മുന്നിൽ

രുട്ടിട്ട്ട്ട്ട്ട്ട കൊച്ചിയിൽ ലാലിഗ വേൾഡ് പ്രീ സീസൺ ഫുട്ബോൾ ടൂർണ്ണമെന്റിൽ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജിറോണ എഫ്

രാത്രി ഏഴിന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മെൽബൺ സിറ്റിയോട് എതിരില്ലാത്ത ആറുഗോളിന് പരാജയപ്പെട്ടിരുന്നു

തൊണ്ടയാട് റൈഫിൾ റേഞ്ചിൽ നടക്കുന്ന ച്ചാമ്പ്യൻഷിപ്പിൽ പതി നൊന്ന് ജില്ലാ ടീമുകളും പൊലീസ് ടീമും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച പരിമിതർക്ക് പഠനത്തിന് ഹൈടെക് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു

പരിമിതികൾ ഉള്ള കുട്ടികളെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെന്നും ഇതിനായി വിവിധ പദ്ധതികൾ പ്രാവർത്തികമാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു

ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖേന ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ആർ

ഒ മാർക്ക് ഇതുസംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ദർവ്വെട്ടറ കേരള സാമൂഹ്യസുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച മിഠായി പദ്ധതിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ തുടക്കമായി ടൈപ്പ് വൺ പ്രമേഹരോഗ ബാധിതരായ കുട്ടികൾക്ക് സമഗ്ര ചികിത്സ ലഭ്യമാ ക്കുന്നതാണ് മിഠായി പദ്ധതി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഇൻസുലിൻ പെൻ ഇൻസുലിൻ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പുകൾ എന്നിവ സൌജന്യമായി നൽകും

പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച പി എം താജ് അനു സ്മരണം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത യുണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ മുന്നറിയി പ്പിൽ പറയുന്നു രദ്ദേഷ്ടങ ലക്ഷദ്വീപിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രത്യേക യോഗം ഉച്ചകഴിഞ്ഞ് ആന്ത്രോത്ത് ദ്വീപിൽ ചേരും യോഗത്തിൽ നേവി കോസ്റ്റ്ഗാർഡ് ലക്ഷദ്വീപ് പൊലീസ് ഉദ്യോഗ സ്ഥരും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുക്കും ദ്വീപിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കടലിൽ പോയ നാല് മത്സ്യ തൊഴിലാളികളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ലക്ഷദ്വീപിന്റെ ചരക്കുകപ്പലായ ചിന്നകരയിൽ അവർക്കായി തെരച്ചിൽ തുടരുന്നുണ്ട് രുട്ടിട്ട്ട്ട്ട്ട്ട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന യുറീക്ക ശാസ്ത്രകേരളം വിജ്ഞാ നോത്സവത്തിന്റെ സ്കൂൾ തലം ബുധനാഴ്ച നടക്കും ജ്യോതിശാസ്ത്രം ബഹിരാകാശ ഗവേഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെടുന്നതും ബഹു മുഖ ബുദ്ധിപരിശോധനയ്ക്ക് ഊന്നൽ നൽകുന്നതുമായ പഠന പ്രവർത്തന ങ്ങളാണ് ഈ വർഷത്തെ വിജ്ഞാനോത്സവത്തിന്റെ ഉള്ളടക്കം

എല്ലാ സർഗാത്മക സാഹിത്യകാരന്മാർക്കും വഴങ്ങുന്ന മേഖലയല്ല ബാലസാഹിത്യമെന്നും അവർ കോഴിക്കോട്ട് പറഞ്ഞു ഭീമ ബാലസാഹിത്യ പുരസ്കാര സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അവർ മലയാള സർവ്വകലാശാല മുൻ വൈസ് ചാൻസലർ കെ ജയകുമാർ കഥാകൃത്ത് വി ആർ സുധീഷിന് പുരസ്കാരം സമ്മാനിച്ചു

പെരുമ്പാവൂരിലെ ചില പ്ലൈവുഡ് കമ്പനി ഉടമകളും ഏജന്റുമാരും ചേർന്നാണ് വെട്ടിപ്പ് നടത്തിയത്

അയൽവാസി മകളെ ഉപദ്രവിച്ചെന്ന പ്രാതി പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ശാസ്താംകോട്ട സ്വദേശിനിയുടെ ഹർജിയി ലാണ് ജസ്റ്റിസ് സുനിൽ തോമസിന്റെ നിരീക്ഷണം